കുറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാന്റു

പുനർമൂല്യനിർണ്ണയത്തിന് സ്ഥിതിയെ നിയോഗിച്ചത് ചട്ടപ്രകാരമെന്ന് മന്ത്രി ക്കെ

മുത്തൂറ്റ് ഗ്രൂപ്പിനെ ഗവൺമെന്റ് ബഹിഷ്ക്കരിക്കണമെന്ന് ഭരണപരിഷ്ക്കാര കമ്മീഷൻ അദ്ധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ

ഫൈനലിൽ ഇന്ത്യൻ താരം അമിത് പൻഗൽ ഇന്നിറങ്ങും

ഏഴു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേയ്ക്ക് അന്താരാഷ്ട്ര സമൂഹം നിരവധി വെല്ലുവിളികൾ പുറപ്പെട്ടത് നേരിടുന്നുണ്ടെന്നും ആഗോള തലത്തിൽ ബഹുതലത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങൾകൊണ്ടുമാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കയിലേയ്ക്ക് പുറപ്പെടുംമുമ്പ് നടത്തിയ പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്

മുഖ്യമന്ത്രി പിണറായി ബിജയൻ വിളിച്ചുചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം

വ്യക്തതയ്ക്കായി കേന്ദ്ര ഗവൺമെന്റിന് വീണ്ടും കത്തയക്കാനും യോഗത്തിൽ ധാരണയായി

തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക ക്രമീകരണങ്ങൾ പൂർത്തിയായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

ഉത്തരകടലാസ് പുനർ മൂല്യനിർണ്ണയം ചെയ്യാൻ ചട്ടപ്രകാരമാണ് സമിതിയെ നിയോഗിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പേപ്പർ ആദ്യം മൂല്യനിർണ്ണയം നടത്തിയപ്പോഴും പുനപരിശോധനയിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും ഇതിനുകാരണകാരായ അധ്യാപകരെ ഡീബാർ ചെയ്യാൻ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു

ശിവഗിരിയിൽ നടക്കുന്ന മഹാസമാധി സമ്മേളനം കേന്ദ്രമന്ത്രി ആർ

വിവിധ ശ്രീനാരായണപ്രസ്ഥാനങ്ങളുടെ ഗുരുമന്ദിരങ്ങളുടെയും നേതൃത്വത്തിൽ നാടാകെ സമാധിദിനം ആചരിക്കുകയാണ് ജാതിവിവേചനം പരാതി കാലിക്കറ്റ് സർവകലാശാലയിലെ പട്ടികജാതി വിദ്യാർഥികളോട് ജാതിവിവേചനം കാണിച്ചെന്ന പരാതിയിൽ ആരോപണവിധേയരായ അധ്യാപകരോട് നിർബന്ധിത അവധിയിൽ പോകാൻ വൈസ് ചാൻസലറുടെ ഉത്തരവ്

മുഹമ്മദ് ബഷീറിന്റെ ഉത്തരവ്

കേരളത്തിൽ മാത്രം രണ്ട് ലക്ഷത്തോളം അൾഷിമേഴ്സ് രോഗികൾ ഉണ്ടെന്നാണ് കണക്ക്

ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഫ്ളാറ്റ് നഗരസഭ നൽകിയ നോട്ടീസിനെതിരെയാണ് ഫ്ളാറ്റുടമ ഹർജി നൽകിയത്

രണ്ട് ഷെഡ്യൂളുകളായാണ് സർവ്വീസ് നടത്തുന്നത്

റോ റോ യാനങ്ങൾ സർവ്വീസ് ആരംഭിക്കുന്നതോടെ നിലവിലെ ബോട്ട് സർവ്വീസ് നിർത്തലാക്കുമെന്ന് കേരള ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവികേഷൻ കോർപ്പറേഷൻ അറിയിച്ചു

ഇത്തരം ബ്ലേഡ് കമ്പനികൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ വികസനം നടക്കുന്നതെന്ന ധാരണപ്പിശക് അവസാനിപ്പിക്കണം മിനിമം വേജസ് ആക്റ്റ് നടപ്പിലാക്കണം യൂണിയൻ അനുവദിക്കില്ല എന്ന നിലപാടിനെ ശക്തമായി നേരിടണമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു

ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ ആശ്രാമം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്

സുഭാഷ് നിർവഹിക്കും

മലപ്പുറം സ്വദേശി സുനീർ അലി തൃശൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് കൊടുവള്ളി പോലീസിന്റെ പിടിയിലായത്

വാഹനം നിർത്താതെ പോയ ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു

തീരദേശ ശുചീകരണത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനായാണ് ദിനാചരണം കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളുടെ ശൂചീകരണത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് മാതൃകയാവുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം

പ്രിൻസിപ്പാൾ ഡോ